സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് ഓണാഘോഷങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

സമ്മേളനത്തിന് മുന്നോടിയായി കോവിഡ് ആന്റിജൻ പരിശോധന നടത്താൻ ത്രീരു്മാനം

സംസ്ഥാനത്ത് ആശ്രിക്ക് നൽകി സമ്പർക്കത്തിലൂടെയുള്ള കോവിഡ് വ്യാപന്റും ജാഗ്രത ശക്തമാക്കി ജില്ലാ ഭരണകൂടങ്ങൾ

രാജ്യത്ത് കോവിഡ് മുക്തരായവരുടെ എണ്ണത്തിൽ വർദ്ധന

ബന്ധുക്കളുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം തീരുമാനം

നിയമസഭാംഗങ്ങൾക്കും സഭാ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കും പരിശോധന നടത്തും സമ്മേളനത്തിന്റെ ഭാഗമായി സഭയിലെത്തുന്ന മാധ്യമപ്രവർത്തകർക്കും ആന്റിജൻ പരിശോധനാ സൌകരൃം ഉപയോഗപ്പെടുത്താവുന്നതാണെന്ന് നിയമസഭാ സെക്രട്ടറി അറിയിച്ചു

കൺസ്യൂമർഫെഡ് സഹകരണ ഓണവിപണിയുടെ ഉദ്ഘാടന്ം വെർച്ചൽ സംവിധാനത്തിലൂടെ നിർവഹിക്കുകയായിരുക്കു ് അദ്ദേഹം സംസ്ഥാനത്ത് കോവിഡ് വ്യാപിക്കുന്ന സാഹ്ചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും അതുകൊണ്ട് ഓണാഘോഷ പരിപാടികൾ വേണ്ടെന്ന് വയ്ക്കാൻ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി നിർദേശിച്ചു

സ്ഥാപനത്തിനുള്ളിൽ ഒരേ സമയം ഉൾക്കൊള്ളാവുന്ന ് പരമാവധി ആളുകളുടെ എണ്ണം സ്ഥാപനത്തിനു പുറത്ത് പ്രത്യേകം പ്രദർശിപ്പിക്കേണ്ടതാണ്

തുണിക്കടകളിൽ വസ്ത്രങ്ങൾ ധരിച്ച് നോക്കുവാനോ വിറ്റത് തിരികെ വാങ്ങുവാനോ പാടില്ല

വിവാഹം മരണം അവശ്യസേവനങ്ങൾ എന്നിവയ്ക്ക് ലോക്ക് ഡൌൺ ബാധകമായിരിക്കില്ല

സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സമ്പർക്ക് ് രോഗികൾ വർദ്ധിക്കുന്നത് ആശങ്ക നൽകുകയാണ്

ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തതും തിരുവനന്തപുരം ജില്ലയിലാണ്

തലസ്ഥാനത്തെ കോവിഡ് വ്യാപനം തടയുന്നതിനായി ജില്ലാ ആക്ഷൻ പ്ലാൻ നവീകരിക്കാനും മേഖല തിരിച്ചുള്ള ഇടപെടലുകൾ നടത്താനും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനിടെ കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന മലപ്പുറം ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിവിധ മേഖലകളിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ആദ്യദിനം നടന്നു

ദുരന്തമേഖലയിൽ തെരച്ചിൽ ഇനിയുംതുടരണോ എസ്റ്റ് ക്ട്ട്ര്യമാണ് യോഗം ചർച്ച ചെയ്യുന്നത്

രാജ്യത്തെ മരണനിരക്കിലും കുറവ് രേഖപ്പെടുത്തി

സുരേന്ദ്രൻ സ്വർണക്കടത്തുകേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി രാജി വയ്ക്കണമെന്ന ആവശ്യത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ

മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഭട്നാവിസ് വെർചൽ സംവിധാനം വഴി സമരം ഉദ്ഘാടനം ചെയ്തു ആഗസ്റ്റ് രണ്ട് മുതൽ ബി ജെ പി യുടെ വിവിധ നേതാക്കൾ നടത്തി വരുന്ന ഉപവാസ സമരം ഇതോടെ അവസാനിക്കും

മേഴ്സിക്കുട്ടിയമ്മി കൊറോണ മഹാമാരിയുടെ പശ്ചാത്തലത്തിലും സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ

കായംകുളം കണ്ടല്ലൂരിൽ കുടുംബാരോഗൃ കേന്ദ്രത്തിന്റെ പുതിയ ബ്ലോക്ക് വീഡിയോ കോൺഫെറെൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

പൊതുജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും നമോ ആപ്പിലും മൈ ഗവ് ഓപ്പൺ ഫോറത്തിലും പങ്കുവയ്ക്കാം